സംസ്ഥാനങ്ങളിൽ പ്രചാരണം ശക്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിൽ മെഗാറാലിയെ അഭിസംബോധന ചെയ്യും

സിംഗിൾ ഫൈനലിൽ ഇന്ത്യൻതാരം പി

എടികെ മോഹൻ ബഗാനും നോർത്ത് ഇൌസ്റ്റ് യുണൈറ്റഡിനും സമനില

ഫെബ്രുവരിയിൽ ബിജെപി ആരംഭിച്ച പരിവർത്തൻ യാത്രക്ക് സമാപനം കുറിച്ചു കൊണ്ടുള്ള മെഗാ റാലിയാണ് ഇന്ന് ഉച്ചക്ക് രണ്ടിന് ബ്രിഗേഡ് പരേഡ് മൈതാനത്ത് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച ശേഷം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയാണിത്

കേരളാ കോൺഗ്രസ് ജോ്സ്സ്ഫ് വിഭാഗവുമായി യുഡിഎഫിൽ നിലനിന്നിരുന്ന തർക്കം ഇന്ന് അവസാനിച്ചേക്കും സിപിഎം സിപിഐ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനം അനുകൂലമായതോടെ ഇടതുമുന്നണിയിലും സീറ്റു വിഭജനം അവസാനഘട്ടത്തിലാണ് കേരളാകോൺഗ്രസ് മാണി വിഭാഗവും സിപിഐയും മത്സരിക്കുന്ന സീറ്റുകളിൽ അനുരജ്ഞനം ആയതോടെയാണ് ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന കോർ കമ്മിറ്റിയോഗത്തിൽ ബിജെപിയുടെ പ്രാഥമിക സ്ഥാനാർത്ഥിപട്ടിക അദ്ദേഹത്തിന് കൈമാറും പട്ടികസംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്

ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ക്ക്സ്ക് സ്കൂരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ സമാപന ൃഷ്ടുങ്ങ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി പ്രവീണ

ശുചീന്ദ്രം ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം അദ്ദേഹം നഗരത്തിൽ നടക്കുന്ന വിജയ് സങ്കൽപ്പ് മഹാസമ്പർക്ക് അഭിയാനിൽ പങ്കെടുക്കും കന്യാകുമാരിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിലും തുടർന്ന് ബിജെപിയുടെ കാര്യകർത്ത സഭയിലും പങ്കെടുത്ത ശേഷം ശ്രീ അമിത് ഷാ വൈകുന്നേരം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും തലസ്ഥാനത്ത് നടക്കുന്ന ബിജെപി കോർ കമ്മിറ്റിയിലും തുടർന്ന് ശ്രീകൃഷ്ണ മഠത്തിൽ നടക്കുന്ന സന്യാസി സംഗമത്തിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രി പങ്കുചേരും

ന്യൂസ്ഡസ്ക് ആകാശവാണി

ആധുനികകാലത്ത് പ്രസക്തമല്ലാത്തിൽ സംവിധാനങ്ങളും നടപടിക്രമങ്ങളും മൂന്നു സ്ന്ധ്യകളും ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

പ്രതരോധ മേഖലയെ സ്വയം പര്യാപ്തമാക്കണമെന്നും ശ്രീ മോദി പറഞ്ഞു

ഡൽഹി ഹരിയാന ആന്ധ്രാപ്രദേശ് ഒഡീഷ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഗോവ ഛണ്ഡിഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാരുമായി നടത്തിയ ചർച്ചയിലാണ് നിർദ്ദേശം മുന്നോട്ടു വച്ചത് ആരോഗ്യ കുടുംബക്ഷേമ സെക്രട്ടറി രാജേഷ് ഭൂഷൺ നിതി ആയോഗ് ആരോഗ്യ വിഭാഗം അംഗം ഡോ വിനോദ് കെ

കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലകളിൽ വാക്സിൻ കുത്തിവയ്പ് വർദ്ധിപ്പിക്കാനും നിർദ്ദേശിച്ചു

വാക്സിൻ എടുക്കുന്നത് കോവിഡ് വരുത്തുമോ എന്ന് ചിലരെങ്കിലും ആശങ്കപ്പെടുന്നുണ്ട് എന്നാൽ അത് തീർത്തും തെറ്റായ കാര്യമാണെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

മുൻപ് കേരളം മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇൌ നിബന്ധന ഏർപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഈ തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു

രണ്ടാം ഘട്ടത്തിൽ ഫെബ്രുവരി രണ്ടിന് കോവിഡ് മുന്നണിപോരാളികൾക്കുള്ള വാക്സിൻ നല്കി തുടങ്ങി

അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കെ ശ്രീകാന്ത് ഡെൻമാർക്കിന്റെ വിക്ടർ അക്സൽസെനിനോട് തോറ്റ് പുറത്തായി

ഇരു ടീമുകളും ഓരോ ് ഗ്ലോളുകൾ വീതം നേടി എടികെയ്ക്ക് വേണ്ടി ഡേവിഡ് വില്ല്യംസും നോർത്ത് ഈസ്റ്റിനായി എദ്രിസാ സില്ലയും ഗോൾ നേടി

ഋഷഭ് പന്തിന്റെ സെഞ്ചുറിയും വാഷിംഗ്ടൺ സുന്ദറിന്റെ ബാറ്റിംഗ് പ്രകടനവുമാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത് ബൌളിംഗിൽ അശ്വിനും അക്ഷർപട്ടേലും തിളങ്ങിയതോടെ ഇന്ത്യ കൂറ്റൻ വിജയം നേടുകയായിരുന്നു ഈ വിജയത്തോടെ ഇന്ത്യ ഐ

തലസ്ഥാനമായ മൊഗാദിഷുവിൽ ഇന്നലെയാണ് ഒരു ഭക്ഷണശാലയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന സ്ഫോടകവസ്തു നിറച്ച കാർ പൊട്ടിത്തെറിച്ചത്